എറണാകുളത്ത് വിജയിച്ച യുഡിഎഫ് മഞ്ചേശ്വരം ഉറപ്പാക്കി അരൂരിൽ യുഡിഎഫ് മുന്നേറുന്നു മഹാരാഷ്ട്രയിൽ ബിജെപി ശിവസേന് സഖ്യം വീണ്ടും അധികാരത്തിലേക്ക് ഹരിയാനയിൽ ഒരുകക്ഷിക്കും വൃക്ത മായ ഭൂരിപക്ഷമുണ്ടാവില്ലെന്ന് സൂചന

ഇന്ത്യൻ സൂപ്പർലീഗ് ഫൂട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ ഇന്ന് മുംബൈ സിറ്റി എഫ് സിയെ നേരിടും പാലായിൽ ജൂനിയർ അത്ലറ്റിക് മീറ്റിനിടെ ഹാമർ തലയിൽ വീണ വിദ്യാർത്ഥി മരിക്കാൻ ഇടയാക്കിയത് സംഘാടന ത്തിലെ പ്പീഴ്ചയെന്ന് അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാനത്ത് നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്ന വട്ടിയൂർക്കാവിലും കോന്നിയിലും എൽഡിഎഫിന് മിന്നും വിജ യത്തിലേക്ക് എറണാകുളം നിലനിർത്തിയ യുഡിഎഫ് മഞ്ചേ ശ്വരത്തും വിജയം ഉറപ്പാക്കി അരൂരിൽ യുഡിഎഫിലെ ഷാനി മോൾ ഉസ്മാൻ ലീഡ് ചെയ്യുന്നു വട്ടിയൂർകാവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ കൂടി യായ വി കെ പ്രശാന്ത് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി വൻ വിജയത്തിലേക്ക്

മഞ്ചേശ്വരത്ത് ബിജെപി രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ എൽഡിഎഫ് മൂന്നാം സ്ഥാനത്തായി

നല്ല സ്ഥാനാർത്ഥികളായാൽ സമുദായം പ്രശ്നമല്ലെന്നാണ് തെര ഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നതെന്ന് വട്ടിയൂർക്കാവിലെ എൽഡി എഫ് സ്ഥാനാർത്ഥി വി കെ പ്രശാന്ത് അഭിപ്രായപ്പെട്ടു നാടിന് നല്ലതു ചെയ്യുന്ന്വർക്ക് എല്ലാവരുടെയും പിന്തുണ ലഭിക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ബിജെപിയുടെയും യുഡി എഫിന്റെയും നിഷ്പക്ഷരുടെയും വോട്ട് എൽഡിഎഫിന് ലഭിച്ചി ട്ടുണ്ടെന്നും പ്രശാന്ത് പറഞ്ഞു യുഡിഎഫ് അനുദിനം ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരി ക്കുന്നതിന്റെ സൂചനയാണ് ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന്റെ അട്ടിമറിജയം കാണിക്കുന്നതെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ തിരു വനന്തപുരത്ത് പറഞ്ഞു എൽഡിഎഫിനെതിരെ നടത്തിയ നുണപ്രചാരണം ജനങ്ങൾ തള്ളിക്കളഞ്ഞതിന്റെ ഭാഗമാണ് ഈ മുന്നേറ്റമെന്നും ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളെ അറിയിച്ചു

ജാതി മത സമവാക്യങ്ങൾക്കപ്പുറമാണ് ജനമനസ്സു കളെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അഭിപ്രായപ്പെട്ടു വട്ടിയൂർകാവിൽ തന്റെ പരാജയം അപ്രതീക്ഷിതമല്ലെന്ന് യുഡി എഫ് സ്ഥാനാർത്ഥി കെ മോഹൻകുമാർ പറഞ്ഞു പ്രളയകാലത്തെ പ്രവർത്തനമടക്കം പ്രശാന്തിന് അനുകൂലമായി വന്നുവെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

പാർട്ടിയോടും മുന്നണിയോ ടുമാണ് കൂറ് പുലർത്തേണ്ടതെന്ന് അദ്ദേഹം കാൻർകോട്ട് പറഞ്ഞു ജനങ്ങളുടെ വിജയമാണ് എറണാ്കുളത്തുണ്ടായതെന്ന് മണ്ഡ ലത്തിൽ വിജയിച്ച യൂഡിഎഫില്ലെട്രി ജെ വിനോദ് പറഞ്ഞു കോർപ്പ റേഷൻ ഭരണത്തിനെതിരെ പ്രതിപക്ഷം ഉ്യർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാന രഹിതമാണെന്ന് വിജയ് തെളിയിച്ചതായി വിനോദ് അഭി പ്രായപ്പെട്ടു

എൽഡിഎഫ് ഗവൺമെന്റ് സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്താണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും സുരേന്ദ്രൻ കുറ്റപ്പെ ടുത്തി മഹാരാഷ്ട്രയിൽ ബിജെപി ശിവസേന സഖ്യം വീണ്ടും അധി കാരത്തിലേക്ക്

സിപിഐഎം ഒരു മണ്ഡലത്തിലും മുന്നിലാണ്

കക്ഷിര ഹിതർ ആറിടത്ത് ലീഡ് ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രിയും ബിജെപി സ്ഥാനാർത്ഥിയുമായ മനോഹർലാൽഖ് ട്ടർ ലീഡ് ചെയ്യുന്നു ഹരിയാനയിൽ ആര് മന്ത്രിസഭ രൂപീകരിക്കണ്ടമെന്ന് ജൻനായക് ജനതാപാർട്ടി തീരുമാനിക്കുമെന്ന് പാർട്ടി അധൃക്ഷൻ ് ദുഷ്യന്ത്ചൌ താല പറഞ്ഞു ആർക്ക് പിന്തുണ നൽകണമെന്ന് കാർ്യത്തിൽ പാർട്ടി യുടെ നാഷണൽ എക്സിക്യൂട്ടീവും നിയമസഭാകക്ഷിനേതാവുമാ യിരിക്കും തീരുമാനമെടുക്കുകയെന്നും അദ്ദേഹം ഹരിയാനയിൽ അറിയിച്ചു പുതുച്ചേരി കാമരാജ്നഗർ ഉപത്തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജോൺകുമാർ വിജയിച്ചു

ഗുജറാത്തിൽ നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ആറ് സീറ്റുകളിൽ ബിജെപിയും കോൺഗ്രസും മൂന്ന് സീറ്റുകളിൽ വീതം ലീഡ് ചെയ്യുന്നു കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്ന അൽപേഷ് താക്കൂർ രാധൻപൂർ മണ്ഡലത്തിൽ പിന്നിലാണ് ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്ന രണ്ട് മണ്ഡലങ്ങ ളിൽ മഹാരാഷ്ട്രയിലെ സതാരയിൽ എൻസിപിയും ബീഹാറിലെ സമസ്തിപൂർ സംവരണ മണ്ഡലത്തിൽ ലോക്ജനശക്തി പാർട്ടിയും ലീഡ് ചെയ്യുന്നു മേഖലാ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ചു

കർഷകരുടേയും കർഷക സംഘടനകളുടേയും കൺവെൻഷൻ തിരുവനന്തപുരത്ത് നടത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൺവെൻഷൻ ഉദ്ഘാ ടനം ചെയ്യുമെന്ന് മന്ത്രിമാരായ വി

സുനിൽകുമാറും കെ

കേരളത്തിന്റെ കാർഷിക കാർഷികാനുബന്ധ വ്യവസായ വ്യാപാര മേഖലകളെ കരാർ തകർക്കുമെന്ന് മന്ത്രിമാർ പറഞ്ഞു ഈ വർഷത്തെ ശബരിമല മണ്ഡല മകരവിളക്ക് ഉത്സവകാ ലത്ത് തീർത്ഥാടകർക്ക് ഏർപ്പെടുത്തേണ്ട സൌകര്യങ്ങൾ ചർച്ച ചെയ്യാൻ ദക്ഷിണേന്തൃൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം നവംബർ അഞ്ചിന് തിരുവനന്തപുരത്ത് ചേരും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് പുറമെ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും പ്ര ഇന്ത്യൻ സൂപ്പർലീഗ് രണ്ടാം മത്സരത്തിൽ കേരള് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മുംബൈ സിറ്റി എഫ് സിയെ നേരിടും കൊച്ചി കലൂർ ജവ ഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ്രക്കാണ് കിക്കോഫ് ആദ്യമത്സരത്തിൽ കൊൽക്കത്തയെ കീഴടക്കിയതിന്റെ ആത്മവി ശ്വാസത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കേരള സർവകലശാല കബ്ഡി ചാമ്പ്യൻഷിപ്പ് ചേർത്തല എസ്

പാലായിൽ സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിനിടെ ഹാമർ തലയിൽ വീണ് പിദ്യാർത്ഥി മരിക്കാൻ ഇടയായത് സംഘാടന ത്തിലെ പ്രീഴ്ചയാണെന്ന് അന്വേഷണ സമിതി കണ്ടെത്തി സംസ്ഥാന സ്പോർട്സ് ഡയറക്ടർ ജെറോമിക് ജോർജിന് അന്വേ ഷണ സമിതി ഇന്നലെ റിപ്പോർട്ട് കൈമാറി

ഈ മാസം നാലിനാണ് പാലാ സെന്റ് തോമസ് ഹയർ സെക്ക ണ്ടറി സ്കൂൾ വിദ്യാർത്ഥി അഫീൽ ജോൺസന് ഹാമർ തലയിൽ വീണ് പരിക്കേറ്റത് കോട്ടയം മെഡിക്കൽ കോളജിൽ ചികിത്സയി ലിരിക്കെ തിങ്കളാഴ്ചയാണ് അഫീൽ മരണപ്പെട്ടത് ലക്ഷ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി വടകര ജില്ലാ ആശുപത്രിയുടെ വികസനം സാധ്യമാക്കുമെന്ന് മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമാണ പ്രവൃത്തിയുടെയും ബ്ലഡ് ബാങ്കിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അനുസരിച്ച് ആവശ്യമായ മാസ്റ്റർപ്സാനിന് തു ക അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി രാജ്യത്തെ കോള ജുകളിലും യൂണിവേഴ്സിറ്റികളിലും അടുത്ത ആധ്യയന വർഷം പൊതു ദേശീയപ്രവേശന പരീക്ഷ നടത്തുമെന്ന് കേന്ദ്രമന്ത്രി രമേഷ് പൊഖ്രിയാൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു

എല്ലാ യൂണിവേഴ്സിറ്റികളില്ലെയും കോളജുകളിലെയും ബിരുദ ബിരുദാനന്തര പി എച്ച് ഡി ക്യോഴ്സുകൾക്കും പൊതുപ്ര വേശന പരീക്ഷകളിലെ സ്ക്കോർ അനുസരിച്ചാകും പ്രവേശനം ഓരോ വിഷയത്തിനും പ്രത്യേക അഭിരുചി പരീക്ഷയാണുണ്ടാകു കയെന്നും നാഷണൽ ട്ടെസ്റ്റിംഗ് ഏജൻസിയാണ് പരീക്ഷ നടത്തു കയെന്നും രമേഷ് പൊഖ്രിയാൻ പറഞ്ഞു

ഈ വിഷയത്തിൽ മുമ്പ് പുറപ്പെടുവിച്ച ഉത്തരവിൽ ജസ്റ്റിസ് അരുൺ മിശ്ര കർഷക താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചതായി കർഷക സംഘടനകളും വൃക്തികളും ആരോപണം ഉന്നയിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ അദ്ദേഹം ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് പിൻമാറണമെന്ന് അവർ നിരന്തരം ആവശ്യപ്പെ ട്ടുവരികയാണ്

മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയും വിദേശ നിക്ഷേപം ആകർഷിക്കാൻ സ്വീകരിച്ച നടപടി കളുമാണ് ഇന്ത്യക്ക് തുണയായതെന്ന് ലോകബാങ്ക് റിപ്പോർട്ടിൽ അറിയിച്ചു വൃവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതും നടത്തുന്നതും സംബന്ധിച്ച് പത്ത് മാനദണ്ഡങ്ങളിൽ ആറിലും ഇന്ത്യ പുരോഗതി നേടിയിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപക ഒഴിവുകൾ ഉടൻ നികത്തിയില്ലെങ്കിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് സർവകലാശാലകൾക്കും കോളജുകൾക്കും യുജിസി താക്കീത് നൽകി അധ്യാപക ഒഴിവുകൾ നികത്തണമെന്നാവശ്യപ്പെട്ട് അഞ്ചാം തവണയാണ് യുജിസി സർക്കുലർ അയക്കുന്നത്

ഉപതിരഞ്ഞെടുപ്പിൽ ചില സമുദായ സംഘടനകൾ ജാതി വികാരം ഇളക്കി രാഷട്രീയത്തിൽ ഇടപെടാൻ ശ്രമിച്ചതായി അദ്ദേഹം പ്റഞ്ഞു ഇത് അവസാനിപ്പിക്കണം സമുദായ സംഘടനകളുടെ പണി രാഷ്ട്രീയ പ്രവർത്തനമല്ല